ത തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ഏതന്വേഷണം നേരിടാനും സന്നദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വാർത്തകൾ വിശദമായി കേരളത്തിലെ നഗരങ്ങളിൽ കോവിഡ് നിയന്ത്രണവും പ്രതിരോധവും ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അശ്രദ്ധ തുടർന്നാൽ രോഗത്തിന്റെ അതിവ്യാപനവും സമൂഹ വ്യാപനവും ഉണ്ടാകുമെന്ന് തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവനന്തപുരത്തെ സ്ഥിതി വിശേഷം കൊച്ചി കോഴിക്കോട് നഗരങ്ങളിൽ ആവർത്തിക്കാൻ പാടില്ല പരിശോധനയിൽ പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം കൊച്ചിയിൽ കൂടുതലാണ് അതിനാൽ അവിടെ പരിശോധനയുടെ എണ്ണം കൂട്ടും ഉയർന്ന ജനസാന്ദ്രതമൂലം സംസ്ഥാനത്തെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രോഗവ്യാപന സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ മാസ്ക്കും സാനിറ്റൈസറും ശാരീരിക അകലവും കൃത്യമായി പാലിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ വിമാനത്താവളത്തിൽ പി

ഇ കിറ്റും മാസ്ക്കും കൈയുറകളും അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപെട്ടിട്ടുണ്ടെന്നും അത്തരക്കാർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇവരെ കൊണ്ടുവരുന്ന ഏജന്റുമാർക്കും കരാറുകാർക്കുമായിരിക്കും ഇതിന്റെ ഉത്തരവാദിത്വം അതിന് തയ്യാറാകാത്തവർക്കെതിരെ നടപടിയെടുക്കും അർദ്ധ സൈനിക വിഭാഗങ്ങളിൽപെട്ടവർക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തതിൽ ഗവൺമെന്റിന്റെ ഉത്ക്കണ്ഠ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു സേനാംഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു

രോഗബാധ റിപ്പോർട്ട് ചെയ്ത ശേഷം ഇതാദ്യമായാണ് ഒരു ദിവസം ഇത്രയേറെ രോഗികളെ കണ്ടെത്തുന്നത്

രാമ പൊന്നാനിയിൽ നഗരസഭാ കൌൺസിലർ ഉൾപ്പെടെ കൂടുതൽ പേരിൽ കോവിഡ് സ്ഥിരീകരിച്ചത് വീണ്ടും ആശങ്കയ്ക്ക് കാരണമാകുന്നു നഗരസഭാ ജീവനക്കാരനും ആരോഗ്യ പ്രവർത്തകർക്കും പൊലീസ് ഉദ്യോഗസ്ഥനും പുതിയതായി രോഗം സ്ഥിരീകരിച്ചു ഇതേത്തുടർന്ന് പൊന്നാനി പൊലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറും എസ്

പല കേസുകളിലും ഉറവിടം വ്യക്തമല്ല രുമ കൊല്ലം വലിയകൂനമ്പായിക്കുളം കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച് മെഡിക്കൽ കോളേജിന് കൈമാറിയ മൊബൈൽ വിസ്ക് ശ്രദ്ധേയമാകുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ

കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണം കൂടതൽ കർശനമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും കലക്ടർ അറിയിച്ചു രുമ എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്ത് മൂന്നാം വാർഡ് കീഴ്മാട് കൃപഞ്ചായത്ത് നാലാം വാർഡ് ആലങ്ങാട് പഞ്ചായത്ത് ഏഴാം വാർഡ് ചൂർണ്ണിക്കര പഞ്ചായത്ത് ഏഴാം വാർഡ് ചെല്ലാനം പഞ്ചായത്ത് ഏഴാം വാർഡ് എന്നിവ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു രദേ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവാസികളുമായി ഇന്ന് അഞ്ച് വിമാനങ്ങൾ എത്തിച്ചേരും ഇതിൽ കെനിയ എത്യോപ്യ കോംഗോ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന പ്രവാസികളും ഉൾപ്പെടും

നിലവിൽ നാല്പത്തി അഞ്ചര ലക്ഷത്തിലേറെപ്പേർ ചികിത്സയിലുണ്ട്

രുമ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ഏതന്വേഷണം നേരിടാനും ഗവൺമെന്റ് സന്നദ്ധമാണെന്നും അതിനെ സ്വാഗതം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി വിമാനത്താവളങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലായതിനാൽ ഇത് തീരുമാനിക്കേണ്ടത് കേന്ദ്രമാണ്

സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് ഫലപ്രദമായ അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞതായും മുഖ്യമന്ത്രി അറിയിച്ചു

ടി വകുപ്പിലെ കരാർ നിയമനം സ്വകാര്യ ഏജൻസി നടത്തിയതാണെന്നും അതിൽ അസ്വാഭാവികത ഇല്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രുര സ്വർണക്കടത്ത് കേസിലെ ആരോപണ വിധേയയുമായി നയതന്ത്ര ഉദ്യോഗസ്ഥ എന്ന നിലയിൽ മാത്രമാണ് പരിചയമെന്ന് സ്പീക്കർ പി

അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ക്ഷണപ്രകാരം സ്റ്റാർട്ടപ്പ് സംരംഭം ഉദ്ഘാടനം ചെയ്തതെന്ന് അദ്ദേഹം വിശദീകരിച്ചു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും സ്പീക്കർ പറഞ്ഞു

നയതന്ത്ര ബാഗേജായി സ്വർണ്ണം അയച്ചത് ആരാണെന്ന് കണ്ടെത്താൻ ശ്രമം ആരംഭിച്ച് കഴിഞ്ഞു ഇന്ത്യയിലെ അന്വേഷണത്തിന് എല്ലാ സഹായവും കാര്യാലയം വാഗ്ദാനം ചെയ്തു രാജ്യത്തിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താൻ ശ്രമിച്ച കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് സ്ഥാനപതി കാര്യാലയം വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കി

അടിസ്ഥാന സങ്കല്പങ്ങളിൽ വരുത്താതെയാണ് മാറ്റം സിലബസ് ചുരുക്കിയതെന്നും ഇത് വിദ്യാർത്ഥികളിലെ പഠന ഭാരം കുറയ്ക്കുമെന്നും രമേഷ് പൊക്രിയാൽ അറിയിച്ചു രുമ അതിർത്തിയിലെ റോഡുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ എന്നിവയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു ഈ ലക്ഷ്യം നേടാൻ അതിർത്തി റോഡ് ഓർഗനൈസേഷൻ സജീവമായി രംഗത്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

കിഴക്കൻ ലഡാക്ക് മേഖലയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ വ്യോമസേന അതീവ ജാഗ്രത തുടരുകയാണ് ഏത് വെല്ലുവിളി നേരിടാനും സജ്ജമായ തരത്തിൽ സുഖോയ് മിഗ് വിമാനങ്ങൾ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട് അയൽ രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അത്യാധുനിക ഡ്രോണുകളെ അതിർത്തിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് വ്യോമസേനാ കേന്ദ്രങ്ങൾ അറിയിച്ചു ദരദ പാരിസ്ഥിതിക മൂല്യങ്ങൾ നിലനിർത്താനാണ് വനസംരക്ഷണം നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ

രുദ നാവികസേനാ യുദ്ധക്കപ്പൽ ഐ

ഈ ദിവസങ്ങളിൽ കടലിൽ പോകുന്നവർ അതാത് ഫിഷറീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് വിവരം തേടേണ്ടതാണെന്ന് കൊല്ലം ജില്ലാ കലക്ടർ അറിയിച്ചു രുമ തൃശൂർ ജില്ലയിൽ പെരിങ്ങൽകുത്ത് അണക്കെട്ടിന്റെ ഒരു സ്സൂയിസ് ഗേറ്റ് രാവിലെ തുറക്കും

രുമ മാതൃഭൂമി മുൻ ചീഫ് ജനറൽ മാനേജരും ആധ്യാത്മിക പ്രഭാഷകനുമായിരുന്ന കോഴിക്കോട് എരഞ്ഞിപ്പാലം സാകേതത്തിൽ കെ

ഹൃദയാഘാതത്തെത്തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

സംസ്കാരം രാവിലെ മാവൂർ റോഡ് ശ്മശാനത്തിൽ